കർണാടകയിൽ വിമത എം

എ

സർഫാസി നിയമം സർഫാസി നിയമം മനുഷ്യത്വരഹിതമായി നടപ്പാക്കുന്നത് മൂലം വായ്പയെടുത്തവർക്ക് ലഭിക്കേണ്ട സ്വാഭാവിക് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് കേരള നിയമസഭാ സമിതി അഭിപ്രായപ്പെട്ടു സർഫാസി നിയമം മൂലം സംസ്ഥാനത്തിനുണ്ടായ പ്രത്യഘാതത്തെക്കുറിച്ചു പഠിക്കാൻ നിയോഗ്ിക്കപ്പെട്ട എസ് ശർമ്മ എം എൽ എ അധ്യക്ഷനായുളള നിയമസ്യഭാ സ്മിതി ജില്ലയിൽ തെളിവെടുപ്പ് നടത്തവെയാണ് ഇങ്ങന്റെ അഭിപ്രായപ്പെട്ടത്